കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ

പരാജയപ്പെടുത്തി ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം ഇന്ന്

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

കൃഷിക്കാരുടെ ഉത്പ്പന്നങ്ങൾക്കും മുള തടി തുടങ്ങിയ മേഖലകളിലും മൂലൃവർദ്ധന ഉണ്ടാക്കുന്നതിനും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജമേഖലയിലും സ്വകാര്യ സംരംഭങ്ങൾ പിന്തുണയ്ക്കും പ്രധാൻമന്ത്രി മത്സ്യ സംപദ യോജനയിലൂടെ ദൃഢമായ മത്സ്യബന്ധന നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കും അടുത്ത അഞ്ച് വർഷക്കാലയളവിൽ പതിനായിരത്തോളം പുതിയ കാർഷിക വിപണന സ്ഥാപനങ്ങൾ നിലവിൽ വരുന്നത് കൃഷിക്കാർക്ക് പ്രയോജനകരമാകുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു രണ്ടാം മോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിനെ വൃവസായ സംഘടനകളും സാമ്പത്തിക വിദഗ്ദ്ധരും കേന്ദ്രമന്ത്രിമാരും പ്രവാസികളും സ്വാഗതം ചെയ്തു വളരെ വലിയ നിക്ഷേപ സൌഹൃദ സംരംഭമാണ് ബജറ്റെന്ന് അസോചാം പ്രസിഡന്റ് ബി

ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യം വയ്ക്കുന്നതും വികസനക്കുതിപ്പിനായി നികുതി ലഘൂകരണ നടപടികൾ ആവശ്യപ്പെടുന്നതുമാണ് ബജറ്റെന്ന് ശ്രീ

ഇ അസസ്മെന്റ് പാൻ ആധാർ എന്നിവയുടെ പരസ്പരം മാറ്റി ഉപ്പിയോഗിക്കൽ ഡിജിറ്റൽ പേയ്മെന്റ് എന്നിവ നികുതിദായകർക്ക് ഗുണ്ണു പ്പെയ്യുമെന്നും ശ്രീ

് കോടിക്കണക്കിന് കൃഷിക്കാർക്ക് ്കൃഷിച്ചെലവ് ചുരുക്കാനും സ്ഥായിയായ കൃഷിരീതികൾ പരിശീലിക്ക്ട്ടുനും സീറോ ബജറ്റ് ഫാമിംഗ് സഹായിക്കുമെന്ന് നബാർഡ് ചെയർമീൻ എച്ച്

നിരവധി പുതിയ പരിഷ്ക്കരണങ്ങൾ ബജ്റ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നതിനാൽ ഇത് മൊത്ത്യത്തിലുള്ള വളർച്ച പ്രോത്സാഹിപ്പിക്കുമെന്ന് ബ്രോക്ക്ബ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചീഫ് എക്സിക്യൂട്ടീവ് ആശിഷ്ക്കൂമാർ ചൌഹാൻ അഭിപ്രായപ്പെട്ടു കേന്ദ്രബജറ്റ് സന്തുലിതവും വികസനോന്മുഖവുമെന്ന് ജമ്മു ചേംബർ ഓഫ് ഇൻഡസ്ട്രീസ് ആന്റ് കൊമേഴ്സ് പ്രസിഡന്റ് രാകേഷ് ഗുപ്തി ആകാശവാണിയോട് പറഞ്ഞു

എ

നവ ഇന്ത്യയുടെ സുപ്രഭാതമാണ് ബജറ്റെന്ന് പ്രവാസി വൃവസായി ബി

പ്രവാസികൾക്ക് രാജ്യത്ത് എത്തുമ്പോൾ കാലതാമസമില്ലാതെ ഉടനടി ആധാർ ലഭിക്കുന്നത് സ്വാഗ്താർഹമെന്ന് ഡാന്യൂബ് ചെയർമാൻ റിസ്വാൻ സജൻ അഭിപ്രായപ്പെട്ടു

എന്നാൽ പെട്രോൾ ഡീസൽ വില വർദ്ധന ആവശൃ സാധനങ്ങളുടെ ്വില വർദ്ധനയ്ക്ക് ഇടയാക്കുമെന്നും അടിയന്തിരമായി പെട്രോൾ ഡീസൽ വില വർദ്ധന പിൻവലിയ്ക്കണമെന്നും ശ്രീ ലിങ്കൻ ഗൌഡ ആവശ്യപ്പെട്ടു

ഷിംലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീ

ഭാരത്മാല പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ റോഡ് ശൃംഖലകളുടെ ശാക്തീകരണത്തിനും പരിപാലനത്തിനുമായി പുതിയ നയം രൂപീകരിക്കാനുള്ള തീരുമാനം മലയോര സംസ്ഥാനമായ ഹിമാചൽപ്രദേശിനെപ്പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകുമെന്നും ശ്രീ

കേന്ദ്ര ബജറ്റിലെ കേരളത്തിന്റെ പരിഗണിക്ക പ്പെടാത്ത ആവശ്യങ്ങൾ വിശദമാക്കി ധനമന്ത്രിക്ക് കത്തയക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി ഡോ

തോമസ് ഐസക് ബജറ്റിൽ പരിഗണിക്കാ ത്തതോ പ്രഖ്യാപിക്കാത്തോ ആയ ആവശൃങ്ങൾ ബജറ്റിനുപുറത്ത് പ്രഖ്യാപി ക്കുമെന്ന പ്രതീക്ഷ നിലനിർത്തിയാണ് കത്തയക്കുന്നതെന്ന് അദ്ദേഹം വൃക്തമാക്കി

പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കടമെടുക്കാനുള്ള പരിധി കൂട്ടണമെന്ന ആ വശൃത്തിന് മറുപടിയില്ല

ഇന്ധന നികുതി വർധന സ്പെഷ്യൽ എക്സൈസ് ഡ്യൂ ട്ടിയിൽ ഉൾപ്പെടുത്തി കൂട്ടുന്നതിനാൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിഹി തം ലഭിക്കില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സാമൂഹികക്ഷേമ മേഖലകളിൽ കഴി ഞ്ഞതവണത്തേക്കാൾ വിഹിതം കൂട്ടിയിട്ടില്ലെന്നും സമ്പദ്ഘടനയെ മുരടിപ്പിൽ നിന്ന് മോചിപ്പിക്കാൻ പര്യാപ്തമല്ല ഈ ബജറ്റെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഉത്തർപ്രദേശിലെ വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃാമ്പയിനിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കും പരിപാടിയുടെ ഭാഗമായി ബഡാ ലാൽപൂരിലെ ദീൻ ദയാൽ ഉപാധ്യായ ട്രേഡ് സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഏകദേശം അയ്യായിരത്തിൽപ്പരം പാർട്ടി പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ജനസംഘ സ്ഥാപകൻ ശൃാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷികദിനം കൂടി കണക്കിലെടുത്താണ് പാർട്ടിയുടെ അംഗത്വവിതരണ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകുന്നത് ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന പാർട്ടി നേതാവ് ശിവ്രാജ് സിങ് ചൌഹാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും

ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന അഞ്ചാമത് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത യോഗത്തിനിടെ ഒപ്പുവച്ച കരാർ പ്രകാരമാണ് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യൻ കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത്

ഹൈക്കമ്മീഷനിലെത്തിയ സംഘത്തെ അഭിസംബോധന ചെയ്യവേ പരിശീലന പദ്ധതി ഇരു രാജൃങ്ങളിലേയും സിവിൽ സർവ്വീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആശയവിനിമയത്തിന് വഴിയൊരുക്കുമെന്ന് ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ ആക്ടിംഗ് ഹൈക്കമ്മീഷണർ ബിശ്വദീപ് ദേ അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഡമാക്കാനും പദ്ധതി സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് ഇന്ത്യ ശ്രീലങ്കയെയും ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയേയും നേരിടും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ഇന്ത്യ ശ്രീലങ്ക മത്സരം

ബ്രിട്ടന്റെ നടപടി നീതിക്ക് നിരക്കുന്നതല്ലെന്ന് ഇറാൻ എലൈറ്റ് ഏപ്പില്യൂഷനറി ഗാർഡ് കമാൻഡർ മേജർ ജനറൽ മൊഹ്സെൻ റെസോയി പറഞ്ഞു

സ്ഥലത്തെ സുരക്ഷാസേന പോസ്റ്റ് ലക്ഷ്യം വച്ചുള്ളതായിരുന്നു ആക്രമണമെന്ന് ഫര്യാബ് പ്രവിശൃ പോലീസ് വക്താവ് അറിയിച്ചു

ബജറ്റിനെ സംബന്ധിച്ച് ആകാശവാണിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സാമ്പത്തിക മേഖലയുടെ അനൌപചാരിക വശം നോക്കിക്കണ്ട ബജറ്റിൽ അനൌപചാരിക ഭാഗങ്ങളിൽ ഔപചാരികത കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നും ശ്രീ പ്രവീൺ വാസ്തവ കൂട്ടിച്ചേർത്തു

പരമ്പരാഗതമായ ധാനൃവിളകൾ തന്നെ കൃഷിയിറക്കുന്നത് തുടരാതെ മൂല്യവർദ്ധിത ഉത്പാദനത്തിലേക്ക് കൃഷിക്കാർ തിരിയണമെന്നും ശ്രീ

സാധാരണക്കാരെ ബജറ്റിൽ വഞ്ചിച്ചതായും ബജറ്റ് പണപ്പെരുപ്പത്തിന് ഇടയാക്കുമെന്നും ശ്രീ ്കമൽനാഥ് അഭിപ്രായപ്പെട്ടു